പുനർ നിർമ്മാണ പ്രക്രിയയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് രാഷ്ട്രീയകക്ഷി പ്രതിനിധികളുടെ ഉറപ്പ്

ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്തൃ ജയത്തിലേക്ക്

മത്സ്യത്തൊഴിലാളികളെ പരിശീലനം നൽകി ദുരന്തസമയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വോളണ്ടിയർമാരാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തീരദേശപോലീസിൽ മത്സൃത്തൊഴിലാളികളെ ഉൾപ്പെടു ത്തുന്നതിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് പുനർനിർമാണ പ്രവർത്തനങ്ങളിൽ എഞ്ചിനീയറിംഗ് വിദ്യാർഥികളെയുൾപ്പെടെ പങ്കെടുപ്പിക്കും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ക്യാമ്പിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കും

കഴിയുന്നിടങ്ങളിൽ വനിതാ പോലീസിന്റെ സാന്നിധൃവുമുണ്ടാകും സംഘടനകളുടെ അടയാളങ്ങളോടെ ക്യാമ്പിലെത്തുന്നത് ഒഴിവാക്കാൻ എല്ലാ പ്പാർട്ടികളും നിർദേശം നൽകണം

രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രഭക്ഷ്യവസ്തുക്കൾ അല്ലാത്ത മറ് സഹായം നൽകുന്നതിൽ തടസ്സ്മില്ല

ജനങ്ങൾക്ക് ഇൻഷുറൻസ് ആനുക്കൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാങ്കേതിക തടസങ്ങൾ പരിഹരിക്കു്ളമുന്ന് ഇൻഷുറൻസ് കമ്പനികൾ അറിയിച്ചി പഞ്ചായത്തുത്ലത്തിലുള്ള പിരിവുകൾ പാടില്ലെന്നും ട്ടുണ്ട്

ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന ഭരണകൂടത്തെ സഹായിക്കുന്നതിലാണ് എൻ

എഫ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രികരിച്ചിട്ടുള്ളതെന്ന് ഡയറക്ടർ ജനറൽ സഞ്ജയ്കുമാർ പറഞ്ഞു

രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു

പ്രളയാനന്തരം രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യത ഉള്ളതിനാൽ ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രത്തിന് കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിനിടെ പ്രളയത്തിൽപ്പെട്ട കർണാടകയിലെ കൊടക് ജില്ലയിലേയ്ക്ക് ബാംഗ്ലൂരിൽ ് നിന്നും ഉള്ള വിദഗ്ധ മെഡിക്കൽ സംഘം യാത്ര തിരിച്ചതായും അധികൃതർ വൃക്തമാക്കി

ഓരോ വൃക്തിക്കും അഞ്ച് കിലോ വീതം ലഭിക്കത്തക്കവിധത്തിലാണ് അരി അനുവദിച്ചതെന്ന് കേന്ദ്രമന്ത്രി വാർത്തിട്ടു ലേഖകരോട് പറഞ്ഞു

കൃാബിനറ്റ് സെക്രട്ടറി പി കെ സിൻഹയുടെ അധൃക്ഷതയിലുള്ള കമ്മിറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അതിവേഗം മെച്ചപ്പെടുകയാണെന്നും ഒറ്റപ്പെട്ട മേഖലകളിൽ മാത്രമാണ് നിലവിൽ ് വെള്ളെക്കെട്ട് ഉള്ളതെന്നും ചീഫ് സെക്രട്ടറി യോഗത്തെ അറിയിച്ചു വിവിധ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു

ജീവനക്കാരുടേയും അങ്കൻവാടി പ്രവർത്തകരുടേയും സേവനം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ

സംക്ഷിപ്ത സെയിൽസ് റിട്ടേണുകൾ അഥവാ ജി

ധനകാര്യ മന്ത്രിയുടെ ചുമതലയുള്ള മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണിക്കാരൃം

പ്രളയക്കെടുതി നേരിടുന്ന കേരളം മാഹി കർണാടകയിലെ കൊടക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൂലൈ മാസത്തിലെ ജി

മുതിർന്ന ബി ജെ

സിത്യദേവ് നാരായണൻ ആര്യയെ ഹരിയാന ഗവർണ്ണറായും കൃട്ടാപ്റ്റൻ സിംഗ് സോളങ്കിയെ ത്രിപുര ഗവർണ്ണറായും നിയമിച്ചു

മേഘാലയ ഗവർണർ ആയിരുന്ന ഗംഗാ പ്രസാദിനെ സിക്കിമീന്റെ പുതിയ ഗവർണ്ണറായും ത്രിപുര ഗവർണ്ണറായിരുന്ന തത്ഗതാ റോയ് യെ മേഘാലയ ഗവർണ്ണറായും മാറ്റി നിയമിച്ചു ഗവർണ്ണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകി

വാജ്പേയിയുടെ ചിതാഭസ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ

അദ്ധ്യക്ഷൻ അമിത്ഷായും ചേർന്ന് പാർട്ടിയുടെ സംസ്ഥാന അദ്ധ്യക്ഷൻമാർക്ക് ന്യൂഡൽഹിയിൽ കൈമാറി അസ്ഥി കലശങ്ങൾ ഏറ്റുവാങ്ങിയ ബി ജെ

സംസ്ഥാന അദ്ധ്യക്ഷൻമാർ അതാത് സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലകളിലുമായി അസ്ഥി കലശയാത്രകൾ സംഘടിപ്പി ക്കുകയും പുണ്യനദികളിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുകയും ചെയ്യുമെന്ന് പാർട്ടി പ്രസ്ഥാവനയിൽ അറിയിച്ചു

ത്യാഗത്തിന്റെയും നിസ്തുലസ്നേഹത്തിന്റെയും സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത്

സൌദി അറേബ്യ ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ ബലിപെരുന്നാൾ ആഘോഷിച്ചു

യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ നെറ്റ് ജെ ഇ

അതേസമയം കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ഒട്സ്റ്റൂർ ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അടുത്ത വ്വർഷക ജനുവരി ന് നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്

ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മരുന്നും മറ്റ് അവശൃ വസ്തുക്കളും ഹെലികോപ്റ്ററുകൾ വഴി എത്തിക്കുന്നുണ്ട്

അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയോടുള്ള ആദര സൂചകമായാണ് ഇത് പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി രമൺസിംഗ് അറിയിച്ചു തലസ്ഥാന നഗരത്തിൽ അടൽ മെമ്മോറിയൽ എന്ന പേരിൽ അഞ്ചേക്കറോളം സ്ഥലത്ത് സ്മാരകം സ്ഥാപിക്കാനും തീരുമാനമായി

ഇതോടെ മൂന്നു സ്വർണവും മൂന്ന് വെള്ളിയും നാല് വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് പത്തു മെട്ഡലുകളായി

ഗ്രപ്പോയിന്റുകളോടെയാണ് സൌരഭ് ഗെയിംസ് റെക്കോഡ് സ്വന്തം ഫ്രിലാക്കിയത്